പശ്ചിമ ബംഗാളിലെ നൃശ്ലാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി

ഇന്ന് സൺറൈസേഴ്സ് ഹൈദ്രാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ് സും തമ്മിൽ ഏറ്റുമുട്ടും

സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെയുടെ ജൻമവാർഷിക ദിനമായ ഇന്ന് ആരംഭിക്കുന്ന വാക്സിനേഷൻ യജ്ഞം ഭരണഘടനാ ശില്പി ബി

കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച മുഖ്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ടീക്കാ ഉത്സവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ നിർദ്ദേശം നൽകി അർഹരായ പരമാവധി പേർക്ക് വാക്സിനേഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീക്ക ഉത്സവ് സംഘടിപ്പിക്കുന്നത്

് വോയ്സ് രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം ആരംഭിച്ചപ്പോൾ തന്നെ വാക്സിൻ വിതരണം ത്വരിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ചു

ആരോഗ്യപൂർണവും കോവിഡ് മുക്തവുമായ ഇന്ത്യ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

വാക്സിനേഷനെതിരെ സ്ഥാപിത താൽപരൃത്തോടെ യുള്ള പ്രചാരണങ്ങളും സന്ദേശങ്ങളും ജനങ്ങൾ അവഗണിക്കണ മെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജി പി ജില്ലാ മജിസ്ട്രേറ്റ് എസ്

അക്രമാസൂക്ത്രായ ജനക്കൂട്ടം സിഐഎസ്എഫ് സുരക്ഷാഭടൻമാരിൽ നിന്ന് ിത്തോർക്കുകൾ പിടിച്ചുവാങ്ങാൻ നടത്തിയ ശ്രമമാണ് ഇന്നലെ കൂ സ്പീതാൽകച്ചി നിയോജകമണ്ഡലത്തിലെ വെടിവയ്പിൽ കലാശീച്ചത് ജനങ്ങളുടേയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടേയും സുരക്ഷയ്ക്ക് വെടിവയ്പ് അനിവാര്യമായിരു ന്നുവെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ റിപ്പോർട്ടിൽ വൃക്തമാക്കി

ഇവിടങ്ങളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാന്റെ നേതൃത്വത്തിൽ ചേർന്ന് അടിയന്തിര യോഗത്തിൽ തീരുമാനിച്ചു

റെസ്റ്റോറൻുകൾ ബാറുകൾ സിനിമ തിയേറ്ററുകൾ ഡൽഹി മെട്രോ ബസുകൾ തുടങ്ങി എല്ലായിടത്തും പകുതി ആൾക്കാർ മാത്രമേ പാടുള്ളൂ

സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും ഹാജർ നില പകുതിയാക്കി

മ്യാന്മറിൽ നിന്നുള്ള വാർത്തകൾ ഹൃദയ ഭേദകമാണെന്ന് യു

അൽമാട്ടിയിൽ നടന്ന ഏഷ്യൻ ഒളിമ്പിക് ഗുസ്തി യോഗൃതാ മത്സരത്തിന്റെ രണ്ടാം ദിനം രണ്ടുപേരും വെള്ളിമെഡൽ കരസ്ഥമാക്കിയിരുന്നു

തദ്ദേശസ്വയംഭരണ വകുപ്പുമായി ചേർന്ന് വാർഡ് തലത്തിൽ ് വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്താനാണ് തീരുമാനം കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാനും ചികിൽസാ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്താനും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു കൂച്ച് ബിഹാർ ജില്ലയിൽ നടന്ന അക്രമസംഭവങ്ങളിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടു

ഭരണ കക്ഷിയായ ത്രിണമൂൽ കോൺഗ്രസും ബി ജെ

കോൺഗ്രസും ഇടത് പാർട്ടികളും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ചേർന്ന് സംയുക്ത മോർച്ചയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്

വിവിധ രാഷ്ട്രട്ടീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സജീവമായ പ്രചാരങ്ങ് രംഗത്തുണ്ട്

ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ഉപ്പ്തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഊർജ്ജിത്മാണ്

മഹാരാഷ്ട്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നും മടങ്ങി എത്തിയ തൊഴിലാളികളോട് ക്വാറന്റയിനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ കാറന്റയിൻ കേന്ദ്രങ്ങളും സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്

വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു

ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം കാട്ടാക്കട വെളളറട ഭാഗത്തെ മലയോര ഗ്രാമീണ മേഖലയിൽ കനത്ത നാശ നഷ്ടം